അംഗീകരിച്ച് കേന്ദ്ര നിയമമന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി വിജ്ഞാൻഭവനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും

ചടങ്ങിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും വകുപ്പ് മന്ത്രി ഗിരിരാജ് സിങ്ങും പങ്കെടുക്കും നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതി നടപ്പാകുന്നതോടെ രാജ്യത്തെ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പുരോഗതി കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ

വിശദാംശങ്ങളുമായി സുരേഷ് ബിജെപി ജമ്മുകശ്മീർ സംസ്ഥാന സെക്രട്ടറി അനിൽ പരിഹർ സഹോദരൻ അജിത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്

കടയിൽ നിന്നും മടങ്ങി എത്തിയ ഇരുവരെയും തൊട്ടടുത്തു നിന്നും അക്രമികൾ വെടിവയ്ക്കുകയായിരുന്നു

വെടിയേറ്റ ഉടൻ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊലീസ് പ്രതികൾക്കായി വ്യാപക അന്വേഷണം തുടങ്ങി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി ഗവർണറുടെ ഉപദേഷ്ടാവ് കെ

മാനവികതയെ ലജ്ജിപ്പിക്കുന്ന ആക്രമണമാണ് നടന്നതെന്ന് ബിജെപി അധ്യക്ഷൻ അമിത് ഷാ പ്രതികരിച്ചു

ഏറ്റവും ദുഃഖകരമായ വാർത്തയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു സിപിഐഎം എം

എ മുഹമ്മദ് യൂസഫ് തരിഗാമി കോൺഗ്രസ് അധ്യക്ഷൻ ഗുലാം അഹമ്മദ് മിർ നാഷണൽ കോൺഫറൻസ് നേതാവ് ദേവേന്ദർ റാണ എന്നിവർ കൊലപാതകത്തെ അപലപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സാമൂഹിക സാമ്പത്തിക ക്ഷേമപദ്ധതികൾക്കായി ഇന്ത്യൻ ജനത നൽകിയ പിന്തുണയെയും അദ്ദേഹം പ്രശംസിച്ചു

ടിൻസ്ലൂക്കിയ ജില്ലയിലെ ദോലയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭൂപ്പ്പ് ഉസെനിക വേഷം ധരിച്ച തീവ്രവാദികൾ ഗ്രാമത്തില്ലേക്ക് ക്ടന്ന് നിരപരാധികളായ നാട്ടുകാർക്ക് നേരെ വെടിവെക്കുകൃയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു നിരവധി പേർക്ക് പ്പെട്ടിവെയ്പ്പിൽ പരിക്കേറ്റു സംഭവത്തെ അസം മൂഖ്യമൃന്തി സർബാനന്ദ് സോനോവാൾ അപലപിച്ചു

മധ്യപ്രദേശ് ഗുജറാത്ത് പട്ന ത്രിപുര ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരായ ഹേമന്ദ് ഗുപ്ത അജയ് രസ്തോഗി എം ആർ ഷാ ആർ

വിമാനം തകരാനിടയായ സാഹച്ര്യത്തെ കുറിച്ച് അറിയുന്നതിന് ബ്ലാക്ബോക്സ് ഇന്തോനേഷ്യൻ അധികൃതർ പരിശോധിച്ചുവരികയാണ്

തീരുവ നടപ്പാക്കാനുള്ള കാലാവധി നീട്ടണമെന്ന് നേരത്തെ വാണിജ്യ മന്ത്രാലയം കേന്ദ്ര മന്ത്രിസഭായോട് ആവശ്യപ്പെട്ടിരുന്നു ആഗസ്റ്റ് നാല് മുതൽ കസ്റ്റംസ് തീരുവ വർധിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഇത് നവംബർ ഒന്നു വരെ നീട്ടുകയായിരുന്നു

അമേരിക്കൻ ഉല്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം ഇന്ത്യ വർധിപ്പിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഇടപെടൽക്ക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം രണ്ടു ന്റേത്തിട്ക്കളും ചർച്ച ചെയ്തു

എന്നാൽ ചർച്ചയുടെ പിശദാംശങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല് സ്റ്റ്ലും അലുമിനീയവും ഉൾപ്പെടെയുള്ളവയുടെ ഇ്റക്കുമതി തീരുവ വർധിപ്പിച്ച നടപടി പിൻവലിക്കാൻ അമേരിക്ക നിരന്തരം ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിവരികയാണ്

കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം ഹരിയാനയിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് കേരളത്തിന്റെ ചുണക്കുട്ടികൾ ഇന്നിറങ്ങുന്നത്

പരാതികളും പരിഭവങ്ങളുമില്ലാതെ അവർ ഇന്ന് ട്രാക്കിലിറങ്ങും

കേരള താരങ്ങളെല്ലാം ഇന്നലെ വൈകിട്ട് റാഞ്ചിയിലെത്തി

അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത അഞ്ച് പേർ ഇത്തവണ കേരള ടീമിലുണ്ട്

പ് ഗോകുൽ സി മുഹമ്മദ് ഫായിസ് അപർണ റോയ് സാന്ദ്ര ബ്ലൂബു അബിന മേരി മാനുവൽ എന്നിവരാണ് അവർ പ്രി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യ ഉൾപ്പെടെയുള്ള കോമൺ വെൽത്ത് രാജ്യങ്ങളിലെ വിരമിച്ച സൈനികർക്ക് പുതിയ തീരുമാനം ഗുണകരമാകും ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു നിരവധി പേർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ബ്രിട്ടനിലെ പഞ്ചാബി സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ ബ്രിട്ടീഷ് അന്താരാഷ്ട്ര വികസന കാര്യ സെക്രട്ടറി പെന്നി മോർഡന്റ് അറിയിച്ചതാണ് ഇക്കാര്യം

ഡി പി നേതാവുമായ എൻ ചന്ദ്രബാബു നായിഡു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് സംയുക്ത വാർത്താസമ്മേളനത്തിൽ ശ്രീ

കഴിഞ്ഞു പോയത് മറക്കണമെന്നും ജനാധിപത്യത്തിനായി ഇപ്പോൾ ഒന്നിക്കേണ്ട ആവശ്യകതയുണ്ടെന്നും ശ്രീ നായിഡു പറഞ്ഞു

ആദിത്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹറ അറിയിച്ചു തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം തിരുവനന്തപുരം സിറ്റിപോലീസ് കമ്മീഷണർ പി

സി പരീക്ഷ്യുടെ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു

അഞ്ച് മത്സരങ്ങളുള്ള ഏകദിനത്തിൽ മൂന്ന് ജയങ്ങൾ സ്വന്തമാക്കിയാണ് ഇന്ത്യ പരമ്പരനേടിയത്